ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നെഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ജന്മാഷ്ടമി ന് ആഘോഷിക്കുന്നു

പാകിസ്ഥാനിലും നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ വിമർശനം

അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാനുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും വോയ്സ് ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള നിരവധി പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളായിരിക്കും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിരന്തരമായി നടക്കുന്ന ഉന്നതതല ആശയവിനിമ യങ്ങളിലൂടെ ഇന്ത്യ യു എ ഇ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടു ന്നതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ട്വിറ്ററിൽ കുറിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി യു എ

തുടർന്ന് ബെഹ്റിൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹമാദ് ബിൻ ഇസ അൽ ഖാലിഫയെ സന്ദർശിക്കും ബെഹ്റിനിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിന്റെ പുനരു ദ്ധാരണ പ്രവർത്തനങ്ങളും അദ്ദേഹം നോക്കി കാണും

എ

ഫ്രാൻസ് പരൃടനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നടത്തിയ ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പാരീസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഫ്രഞ്ച് പ്രധാനമന്ത്രി എഡ്വാർഡ് ഫിലിപ്പുമായും ശ്രീ

നവ ഇന്ത്യയെ നിർമ്മിക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മൻ കി ബാത്തിന്റെ മൂന്നാം പതിപ്പാണ് നാളെ പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളിലും ആകാശവാണിയുടെ വെബ്സൈറ്റിലും പരിപാടി ലഭിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ മന്ത്രാലയം ആകാശവാണിയുടെയും ദൂരദർശന്റെയും വാർത്താ വിതരണ വിഭാഗം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും തത്സമയം പരിപാടി ലഭൃമാകും ഹിന്ദിയിലുളള പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻതന്നെ ആകാശവാണി വിവിധ പ്രാദേശിക ഭാഷകളിൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടുമണിക്ക് പ്രാദേശിക ട്ട്ഷ്ക്ക്ളിൽ പുനഃപ്രക്ഷേപണവും ഉണ്ടാകും

എന്നാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുക എന്ന ഉദ്ദേശൃം ഇതിനില്ലെന്നും ശ്രീ രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു

തുടർന്ന് സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ഗോർഖാ റൈഫൽസ് റെജിമെന്റിന്റെ കേന്ദ്രം എന്നിവ സന്ദർശിച്ച് സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ കേന്ദ്രമന്ത്രി ലക്നൌ കന്റോൺമെന്റിലെ കേന്ദ്ര കന്റോൺമെന്റ് യുദ്ധസ്മാരകത്തിലെ ത്തി പുഷ്പചക്രവും സമർപ്പിച്ചു

ന്യൂഡൽഹിയിലെ ഗാസിയാബാദിൽ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഫുഡ് ലബോറട്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഐ യുടെ ടവറിന്റെ ശിലാസ്ഥാപനവും ഡോ

നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോ ഉൾപ്പെടെ പത്തു പ്രതികൾ കൊലക്കുറ്റത്തിൽ അടക്കം കുറ്റക്കാരാണെന്ന് കോടതി വ്യാഴാഴ്ച വിധിച്ചിരുന്നു ഭാര്യാപിതാവ് ചാക്കോ ജോൺ അടക്കം നാലു പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു കോട്ടയം സ്വദേശിയായ കെവിനെ ദുരഭിമാനത്തിന്റെ പേരിൽ നീനുവിന്റെ സഹോദരനും കൂട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തി യെന്നാണ് കേസ് മൂന്നുമാസത്തെ വിചാരണയ്ക്കുശേഷമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത്

ഒപ്പം ആഭ്യന്തര ഓഹരി വിപണി നിക്ഷേപങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന അധിക നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ വാർത്താലേഖകരെ അറിയിച്ചതാണ് ഇക്കാര്യം ഭവന വാഹന വായ്പകൾ ചെറുകിട വായ്പകൾ എന്നിവയ്ക്കു മാസത്തവണയും കുറച്ചിട്ടുണ്ട്

വ്യാപാരികളും ചെറുകിട ഇടത്തരം നിക്ഷേപകരും കുടിശ്ശികയാക്കിയ ജി

ഉത്തർപ്രദേശിലെ മഥുരയും വൃന്ദാവനും ശ്രീകൃഷ്ണന്റെ ജനനം ആഘോഷമാക്കാൻ പൂർണമായും ഒരുങ്ങിക്കഴിഞ്ഞു ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മഥുരയിലെ ജന്മഭൂമി ക്ഷേത്രം ഉൾപ്പെടെ രാജ്യത്തെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇതോടനുബന്ധിച്ച് അലങ്കരിച്ചു കഴിഞ്ഞു മഥുരയിലെ ആഘോഷങ്ങളിൽ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് പങ്കുചേരും ആഘോഷങ്ങളോടനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു അനുമോദന ങ്ങളെക്കാൾ ഉത്തരവാദിത്തങ്ങൾക്ക് നാം ഊന്നൽ നൽകണമെന്നാണ് ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിച്ചതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

ഒരു റിപ്പോർട്ട് ചെന്നൈയിൽ നടന്ന ഭക്ഷ്യസംസ്കരണ വ്യവസായ പ്രദർശനം കേന്ദ്ര സഹമന്ത്രി രാമേശ്വർ ടെലി ഉദ്ഘാടനം ചെയ്തു

കേന്ദ്ര ഗവൺമെന്റ് ഇതിനായി സബ്സിഡി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇരു രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളും അഹമദീസും മറ്റ് വംശീയ ന്യൂനപക്ഷ ങ്ങളും വളരെയേറെ ക്രൂരതകൾ അനുഭവിക്കുന്നതായി അമേരിക്കയും ബ്രിട്ടനും കുറ്റപ്പെടുത്തി മത വിശ്വാസത്തിന്റെ പേരിൽ അതിക്രമങ്ങൾക്ക് ഇരയായവർക്കായുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ന്യൂനപക്ഷ സുരക്ഷ വർധിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ സംഘടിപ്പിച്ച അറിയ ഫോർമുല ചർച്ചയിലാണ് ഇരു രാജ്യങ്ങൾക്കെതിരെയും ഉള്ള വിമർശനം

ഈ മാസം ദൃന് ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ അന്തിമ പ്രസിദ്ധീകരണത്തിന്റെ മുന്നോടിയായി സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും അദ്ദേഹം അവലോകനം ചെയ്തു ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ കൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു

ഇന്ത്യൻ താരം ഇശാന്ത് ശർമ്മ അഞ്ച് വിക്കറ്റ് നേടി